ജെ

ഭീകരതക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്ര സിന്റെ നിലപാടാണ് പിട്രോഡയുടെ പരാമർശത്തിലൂടെ പുറത്തുവന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇതുവഴി പാക്കിസ്ഥാന്റെ ദേശീയ ദിനാചരണത്തിന് കോൺഗ്രസ് തുടക്കം കുറിച്ചതായും മോദി അഭിപ്രായപ്പെട്ടു പുൽവാമയിൽ ഏതാനും ചിലർ നടത്തിയ ആക്രമണത്തിന്റെ പേരിൽ ഒരു രാജ്യത്തെ മുഴു വൻ പഴിക്കാനാവില്ലെന്ന പിട്രോഡയുടെ പരാമർശമാണ് വിവാദമായത് പിട്രോഡയുടേത് വൃക്തിപരമായ അഭിപ്രായമാണെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജെവാല പ്രതികരിച്ചു അതിനിടെ പാക്കിസ്ഥാൻ ഹൈക്കമ്മീ ഷൻ ഡൽഹിയിൽ അവരുടെ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘ ടിപ്പിക്കുന്ന ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയി ച്ചു ഇസ്പാമാബാദിലെ ചടങ്ങിൽനിന്നും അവിടുത്തെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ മാറിനിൽക്കും ജമ്മുകശ്മീരിലെ ഹുറിയത്ത് നേതാക്കളെ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യൻ നടപടി

ജെ

എന്നാൽ പത്തനം തിട്ടയിലെ സ്ഥാനാർത്ഥിയെ രണ്ടാംപട്ടികയിലും പ്രഖ്യാപിച്ചിട്ടില്ല

ഉത്തർപ്രദേശ് കോൺഗ്രസ് പ്രസിഡന്റ് രാജ്ബബ്ബാറിന്റെ മണ്ഡലം നേരത്തെ പ്രഖ്യാപിച്ച മൊറാദാബാദിൽ നിന്ന് ഫത്തേപ്പൂർ സിക്രി യിലേക്ക് മാറ്റി മുൻ കേന്ദ്രമന്ത്രി രേണുകാ ചൌധരിയെ തെലങ്കാനയിലെ ഖമ്മത്ത് മത്സരിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്ട്

പി നേതാവ് ബി

ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജെ വാല ആരോപണം ഉന്നയിച്ചത്

എം മുൻ ജനറൽ സെക്ര ട്ടറി പ്രകാശ് കാരാട്ട് ആവശ്യപ്പെട്ടു

ജെ പിയെ തോൽപ്പിക്കൽ മതേതര ഗവൺമെന്റ് രൂപീകരണം ഇടതുപക്ഷത്തിന്റെ കരുത്ത് കൂട്ടൽ എന്നീ മൂന്ന് മുദ്രാവാക്യങ്ങളാണ് സി

എം മുന്നോട്ടുവയ്ക്കുന്നതെന്ന് അദ്ദേഹം കണ്ണൂരിൽ മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു

ജെ പി കോൺഗ്രസ് ബന്ധം നിലനിൽക്കുന്നുണ്ടെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആലപ്പുഴയിൽ പറഞ്ഞു

എസ് എസ് ഇടതുമുന്നണിയുടെ ശത്രുവല്ലെന്നും എൻ

എസ് നേതൃത്വം താല്പരൃപ്പെട്ടാൽ ചർച്ചക്ക് തയ്യാറാണെന്നും കോടിയേരി പറഞ്ഞു

ജെ പി ഗവൺമെന്റ് അഴി മതിയുടെ നടുക്കടലിലാണെന്ന് സി

ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ചേർത്തലയിൽ പറഞ്ഞു

ഐ നേതാക്കളായിരുന്ന സി കെ ചന്ദ്രപ്പൻ കെ ആർ സാമിനാഥൻ പി വി പൊന്നപ്പൻ എന്നിവരുടെ ചരമ വാർഷിക അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കാനം രുവെട്ടിരി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ച ലീഗിനും യു

എഫിലെ പാർട്ടികൾക്കും ഉണ്ടാകുമെന്ന് എൽ

എഫ് കൺവീനർ എ വിജയരാഘവൻ പറഞ്ഞു കഴിഞ്ഞ മലപ്പുറം ഉപതെരഞ്ഞെ ടുപ്പിൽ ലീഗ് എസ്

ഐ ജമാഅത്തെ ഇസ്ലാമി എന്നിവരുമായി ഉണ്ടാ ക്കിയ സഖ്യം തെറ്റാണെന്ന് പറയാൻ നേതൃത്വം തയ്യാറാകുമോ എന്ന് അദ്ദേഹം ചോദിച്ചു മലപ്പുറം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വിജയരാഘവൻ

എക്കെതിരെ പൊതുസ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ സി

എമ്മും കോൺഗ്രസും തയ്യാറാകണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് കണ്ണൂരിൽ ആവശ്യപ്പെട്ടു ലോക്സഭാ തെര ഞ്ഞെടുപ്പിൽ കേരളത്തിലും സി

എമ്മും കോൺഗ്രസും കോ മാ സഖ്യം രൂപീകരിച്ച് കോലീബി സഖ്യമെന്ന ആരോപണം ഉന്നയിക്കുകയാ ണെന്നും കൃഷ്ണദാസ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

ഡി

ഡി എഫിന്റെ സ്ഥാനാർത്ഥിപട്ടിക പുറത്തുവന്നതോടെ സി

ഐ എം പരാജയഭീതിയിൽ പരക്കം പായുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു

രാജ്യത്ത് മാറ്റം കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന് കഴിയില്ലെന്ന് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു

ധർമ്മടം ബീച്ച് മുഴപ്പാല പേരാവൂർ ഇരിക്കൂർ എന്നിവിടങ്ങളിൽ മുഖ്യമന്ത്രി പ്രചാരണം നടത്തും

ഡി എഫിന്റെ പത്തനംതിട്ട പാർലമെന്റ് കൺവെൻഷൻ ഇന്ന് നടക്കും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും രുവെട്ടിരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് മൂന്നാറി ലെയും ദേവികുളത്തെയും സ്കൂൾ വിദ്യാർത്ഥികൾ മാതാപിതാക്കൾക്ക് കത്തയച്ചു ദേവികുളം റവന്യൂ ഡിവിഷൻ ഓഫീസിന്റെ നേതൃത്വത്തിലാണ് കത്തെഴുത്ത് സംഘടിപ്പിച്ചത് ആയിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു രുവെട്ട്ടറു തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അനധികൃത പണ ഉപയോഗം കണ്ടെ ത്താൻ പൊലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു

രേഖകളില്ലാത്ത പണവും സ്വർണവും സംഘം പിടികൂടും സംസ്ഥാനത്ത് ജനുവരി മുതൽ ഇതുവരെ അനധികൃതമായി സൂക്ഷിച്ച അഞ്ചേമുക്കാൽ കോടിയോളം രൂപയും ഒന്നേമുക്കാൽ കോടി രൂപയുടെ സ്വർണവും പിടികൂടിയിട്ടുണ്ട് മലപ്പുറം പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലായിരുന്നു റെയ്ഡ്

ഇതു മായി ബന്ധപ്പെട്ട് ഒരാളെ കസ്റ്റഡിയിലെടുത്തു

ബന്ദിപൊര ഷോപ്പിയാൻ ജില്ലകളിൽ നടത്തിയ ഏറ്റുമുട്ടലിലാണ് ഭീകരരെ വധിച്ചത് ഭീക രർ ബന്ദിയാക്കിയ ഒരാളെ സുരക്ഷാസേന രക്ഷപ്പെടുത്തി

ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി എട്ടിന് ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർകിംഗ്സ് ബംഗളുരു റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും ധോണിയുടെ ചെന്നൈ ടീമും കോഹ്ലിയുടെ ബാംഗ്ലൂർ ടീമും ഏറ്റുമുട്ടുമ്പോൾ വിജയം ആർക്കായിരിക്കുമെന്ന് ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കുകയാണ് അടുത്ത മെയിൽ തുടങ്ങുന്ന ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിന്റെ അവസാന തയ്യാറെ ടുപ്പ് കൂടിയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ്

ക്യാമ്പസുകളെ നിശ്ബദമാക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ ചെറുക്കണമെന്ന് പാലക്കാട്ട് സംസ്ഥാന ഇന്റർപോളി കലോത്സവം സ്റ്റേജിന മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യവെ മന്ത്രി ആവശ്യപ്പെട്ടു രദേവ്ടെഴ മലയാള സിനിമയിലെ സമഗ്ര സംഭാവനക്ക് മലപ്പുറം രശ്മി ഫിലിം സൊസൈറ്റി ഏർപ്പെടുത്തിയ പ്രഥമ സത്യജിത് റേ പുരസ്കാരത്തിന് നടൻ ഇന്ദ്രൻസ് അർഹനായി

ആന്ധ്രപ്രദേശ് സ്വദേശിയും ഇടുക്കി സ്വദേശികളുമാണ് എക്സൈസിന്റെ പിടിയിലായത്

ആന്ധ്രയിൽ നിന്ന് തമിഴ്നാട്ടിലൂടെ ഇടുക്കി വഴി കേരളത്തിൽ മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘമാണ് പിടി യിലായത് രുവെട്ടുമ തിരുവനന്തപുരം വിമാനത്താവളം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം കോവളം ബീച്ച് മേഖലയിൽ ഇന്നലെ പുലർച്ചെ ഡ്രോൺ കണ്ടെത്തി യ സംഭവത്തെത്തുടർന്ന് സുരക്ഷ ശക്തമാക്കി സംഭവത്തിൽ കേന്ദ്ര ഏ ജൻസികളും ഇൻ്റലിജൻസും അന്വേഷണം ആരംഭിച്ചു

ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഒരാഴ്ച യെങ്കിലും വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ രുടെട്ട്ടറു ഇൻഫർമേഷൻ കേരള മിഷനിൽ കരാർ നിയമനം ലഭിച്ച അക്കൌ ണ്ടന്റുമാർക്കും ഐ ടി വിദഗ്ദ്ധർക്കും നിയമപ്രകാരം പ്രസവാവധി അനുവ ദിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു ഉത്ത രവ് നടപ്പാക്കി രണ്ടുമാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ അംഗം പി മോഹനദാസ് ഉത്തരവ് നൽകി രുട്ടിട്ട്ട്ട്ട്ട്ട്ട മലപ്പുറത്ത് വെസ്റ്റ്നൈൽ പനി ബാധിച്ച് കുട്ടി മരിച്ച സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു കൊതുകിലൂടെ പകരുന്നതിനാൽ കൊതുക്വല ഉപയോഗിച്ചും കൊതുക് നിവാരണ പ്രവർത്തനങ്ങളിലൂടെയും രോഗബാധ തടയാമെന്ന് ഡി എം ഒ അറിയിച്ചു രാട് വടകര ബസ്സ്റ്റാന്റിന് സമീപം ബൈപാസിൽ സ്കൂട്ടറിൽ ലോറിയിടിച്ച് രണ്ടുപേർ മരിച്ചു

ഇവ രുടെ സ്കൂട്ടറിലിടിച്ച ലോറി നിർത്താതെ കടന്നുപോയി

ഡിയുമായ ദേവദാസ് ആറോൺ നിര്യാതനായി